ഡൽഹി സംഘർഷം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു

തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ആഗോള ശ്രദ്ധ നേടിയതായി വിദേശകാരൃമന്ത്രി എസ്

ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലൻഡിന് ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം

സഭയോടുള്ള ബഹുമാനവും മര്യാദയും കാത്തുസൂക്ഷിക്കണമെന്ന് ലോക്സഭ സ്പീക്കർ ഓം ബിർള സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

ഡൽഹിയിലെ സംഘർഷം ചർച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ബഹളമുണ്ടാക്കിയത് കോൺഗ്രസ് ടി

സി

ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി എന്നാൽ സഭാ നടപടികൾ മുൻനിശ്ചയിച്ച പ്രകാരം തുടരാനാണ് സ്പീക്കർ തീരുമാനിച്ചത് ഡൽഹിയും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും സമാധാനത്തിലെത്തിയ ശേഷം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ ഉറപ്പുനൽകിയെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ബഹളം തുടരുകയായിരുന്നു

ഇതിനെ നേരിടാൻ ഭരണപക്ഷാംഗങ്ങൾ എത്തിയതോടെ രംഗം കൂടുതൽ ശബ്ദായമാനമായി ഇതേ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി നിലനിൽക്കുന്ന നികുതി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ ബില്ല് നിയമമാവുന്നതോടെ കഴിയുമെന്ന് അവർ പറഞ്ഞു

സാധാരണകാരന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ബില്ലാണിതെന്ന് ബി ജെ

എന്നാൽ പ്രതിപക്ഷ ബഹളത്തിനിടെ ബില്ല് സംബന്ധിച്ച ചർച്ച പൂർത്തിയാക്കാനായില്ല

നിയമപരമായി ഗർഭഛിദ്രം നടത്താനുള്ള സമയപരിധി മുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ബില്ല് സ്ത്രീകൾക്ക് സുരക്ഷിതവും നിയമത്തിന്റെ പരിധിയിൽ നിന്നുക്കൊണ്ടുള്ളതുമായ ഗർഭഛിദ്രം അനുവദിക്കാനും ബില്ല് വ്യവസ്ഥ ച്ചെയ്യുന്നു

പിമാർ ഇന്ന് പാർലമെന്റ് സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ധർണ സംഭവത്തിൽ സഹൈക്കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് എ

ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിന്റെ ആദ്യ ദിനത്തോട നുബന്ധിച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്

കേന്ദ്ര മാ്നവ് വിഭവശേഷി വികസന മന്ത്രി രമേഷ് പൊഖ്രിയാലാണ് ബഹളത്തിനിടെ് രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ചത്

ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ഗുരു ഘാസിദാസ് സർവ്വകലാശാലയിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇവിടെ പഠനത്തിൽ മികവ് പുലർത്തിയ ഒമ്പത് അദ്ദേഹം

സർവ്വകലാശാലയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോയാൽ മതിയെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു

ഇറ്റലിയിൽ നിന്നെത്തിയാൾക്കാണ്

തെലങ്കാനയിൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തയാൾ ദുബായിയിൽ നിന്നെത്തിയതാണ്

ഈ രണ്ട് രോഗികളും കർശന നിരീക്ഷണത്തിലാണ് ഇറാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗ്പ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു പനി തൊണ്ടവേദന ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പരിഭ്രാന്തരാകരുതെന്നും അദ്ദേഹം പറഞ്ഞു

ഇറാനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യലയവുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനിടെ ഇന്നലെ രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഫ്ളോറിഡയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു

നാളെ രാവിലെ ആറ് മണിക്കാണ് നാല് പ്രതികളെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ടിരുന്നത്

ബൊപ്പണ്ണ എന്നിവരടങ്ങിയ ബഞ്ചാണ് നിർദ്ദേശം സ്വീകരിക്കാനാവില്ലെന്ന് അറിയിച്ചത് പ്രതികൾ നേരിട്ടോ കുടുംബാംഗങ്ങൾ മുഖേനയോ ആണ് ഇത്തരം ആവശ്യങ്ങൾ അറിയിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി

കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി വൃക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു

ജി